ലോക്സഭ ഭീകരവാദ വിമുക്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ സാധ്യമാകൂവെന്ന് ഇന്ത്യ

ലോക്സഭാ തിർഐഞ്ഞടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി

ഇന്ത്യൻ വെൽസ് ചാമ്പ്യൻഷിപ്പ് റോജർ ഫെഡറർ ക്വാർട്ടറിൽ

തീവ്രവാദ വിമുക്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചകൾ സാധ്യമാവൂ എന്ന് വിദേശകാരൃ മന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ തീവ്രവാദത്തിനെ തിരെ പാകിസ്ഥാൻ കർക്കശ നടപടിയെടുക്കണം ഇന്തൃയ്ക്കെ തിരായ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നത് പൂർണ്ണമായും നിറുത്തണം ഇത് സാധ്യമായാൽ മാത്രമേ ചർച്ച യ്ക്കുള്ള വഴിയൊരുങ്ങൂവെന്നും അവർ പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മികച്ച രാജൃതന്ത്രജ്ഞനാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ജെയ്ഷ് ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അദ്ദേഹം തയ്യാറാവണം തീവ്രവാദം തീവ്വ്വാദത്തെ പ്രോത്സാഹി പ്പിക്കുന്ന നടപടികൾ എന്നിവ ത്യൂട്ടിരുന്ന പാകിസ്ഥാൻ വിഷയ ത്തിൽ അന്താരാഷ്ട്ര സമൂഹരിത്തു തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ശ്രീമതി സുഷമ സ്വരാജ് ആര്യോപിച്ചു

മസൂദ് അസ്രറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെ തിരെയുള്ള ചൈനയുടെ നീക്കത്തിന് പിന്നാലെയാണ് അമേരിക്ക യുടെ പ്രതികരണം മസൂദ് അസ്ഹറിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഐകൃരാഷ്ട്ര സഭ സുരക്ഷാ കൌൺസിൽ മുന്നോട്ട് വച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്കൊണ്ടു തന്നെ ആഗോള ഭീകരനായി ഇയാളെ പ്രഖ്യാപിക്കാൻ സാധിക്കൂവെന്നും അമേരിക്കൻ എംബസിയുടെ വക്താവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു

കർതാർപൂർ ഇടനാഴിയ്ക്ക് വേണ്ടി സാങ്കേതികതല ചർച്ച വേണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്

ഈ രേഖകൾ വിശേഷാധികാരമുള്ള രേഖകളാണെന്നും അനുമതി യില്ലാതെ ഇത് ഹാജരാക്കാനാവില്ലെന്നുള്ള ഗവൺമെന്റിന്റെ വാദങ്ങളെ തുടർന്നാണിത് എന്നാൽ ദേശീയ സുരക്ഷയുടെ പേരിൽ എല്ലാം മാറ്റിവയ്ക്കാനാവില്ലെന്ന് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു

അറ്റോർണി ജനറൽ കെ

വേണുഗോപാലാ ണ് ഗവൺമെന്റിന് വേണ്ടി ഹാജരായത്

വേണുഗോപാൽ വാദിച്ചത്

പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിയിൽ വർധനവുണ്ടാക്കാതെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

അത്യാധുനികമായ പല സവിശേഷതകളും ഉള്ളതാണ് മിസൈലെന്ന് രാജൃരക്ഷാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ കർത്തവൃങ്ങളും ഉത്തരവാദിത്തങ്ങളും ചർച്ച യായി

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലാവാസ സുശീൽ ചന്ദ്ര എന്നിവർ നിരീക്ഷകർക്ക് മാർഗ നിർദ്ദേശങ്ങൾ നൽകി

ജമ്മുകശ്മീരിൽ പൊതു ത്ത്രെട്ടെപ്പ് നടത്തുന്നതിനാണ് സ്ഥിതി വിലയിരുത്തുന്നത്

നൂർ മുഹമ്മദ് എ

കേന്ദ്ര മെഡിക്കൽ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തുടർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ

ഇതെകുറിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമസെക്രട്ടറി പ്രീതി സുധനുമായി ചർച്ച നടത്തി സ്ഥിതിഗതികൾ സൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണെന്നും രോഗബാധ പടരാതിരിക്കാനും നിയന്ത്രിക്കാനും കേരളത്തിന് എല്ലാ പിൻതുണയും നൽകണമെന്നും അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി

രാജീവ് സദാനന്ദനുമായി കേന്ദ്ര ആരോഗ്യസെക്രട്ടറി നടത്തിയ ചർച്ചയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി

കൊതുക് നശീകരണമാണ് വൈറസ് ബാധ തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗ്ഗം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

പക്ഷികളിൽ നിന്നും കൊതുകുകളിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കു മാണ് വൈറസ് പകരുന്നത്

രാത്രികാലങ്ങളിൽ കടിക്കുന്ന ക്യുലെക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യശരീരത്തിൽ എത്തുന്നത് വൈറസ് നേരിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല സാധാരണ പനിക്കുണ്ടാകുന്ന തരത്തിൽ കണ്ണ് വേദന പനി തലവേദന ശരീരവേദന ഛർദ്ദി വയറിളക്കം ചർമ്മത്തിൽ തടിപ്പുകൾ എന്നിവയാണ് വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങൾ ചുരുക്കം ചിലരിൽ തലച്ചോർ വീക്കം മെന്റ്രൂഞ്ചൈറ്റിസ് എന്നിവയും ഉണ്ടാകാറുണ്ട് എന്നാൽ വൈറസ് ബ്രാൻയേൽക്കുന്ന ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ പ്രക്ട്മാക്ാറില്ല കൊതുകളിലൂടെ പകരുന്നതിനാൽ കൊതുക് ന്യശ്രീക്ർണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗ്ഗ്മ ന്യൂസ് ഡെസ്ക് ആകാശ്യാണി

എ ഗവൺമെന്റിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുന്നയിച്ച് കോൺഗ്രസ് ദേശീയ അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ജനമഹാറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കേൾക്കുന്നില്ലെന്ന് ശ്രീ രാഹുൽ കുറ്റപ്പെടുത്തി